എസ് ആർ ടി

എസ്

ടി സിയിലെ ഡ്രൈവർമാരുടെ കുറവ് പരിഹ രിക്കാൻ ദിവസവേതനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രി എ കെ ശശീ ന്ദ്രൻ വിളിച്ച ഉന്നതതല യോഗം തീരുമാനിച്ചു ഡ്രൈവർമാർ ഇല്ലാത്തത് മൂലം ഇന്നലെ ആയിരത്തി ലേറെ സർവീസുകൾ മുടങ്ങി

ഇതുമൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എസ്

ടി സി സർവീസുകൾ വെട്ടിക്കുറക്കേണ്ടി വന്നു

മൂന്ന് കോടിയോളം രൂപ യുടെ വരുമാന നഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു കേരളത്തിലെ പ്രവാസി നിക്ഷേപം വർധിപ്പിക്കാൻ ആവശ്യ മായ സഹായം നൽകാൻ ഉന്നത്തല നിക്ഷേപക കൌൺസിൽ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഈ സാഹചര്യം പ്രയോജനപ്പെ ടുത്തി വൃവസായം തുടങ്ങാനും നിക്ഷേപം നടത്താനും പ്രവാസി സംരംഭകർ മുന്നോട്ടു വരണമെന്ന് മുഖ്യമന്ത്രി ദുബായിൽ ആവശ്യപ്പെട്ടു നിക്ഷേപത്തിന് അനുകൂല മായ എല്ലാ സാഹചര്യവും സംസ്ഥാനത്ത് ഒരുക്കും കേരളത്തിന്റെ വികസനത്തിന് പ്രവാസി നിക്ഷേപ സാധൃ തകൾ വൃക്തമാക്കാൻ സംഘടിപ്പിച്ച നീം മീറ്റിൽ സംസാ രിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പാലാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച മാണി സി കാപ്പന്റെ സത്യപ്രതിജ്ഞ അടുത്ത ബുധനാഴ്ച നടക്കും

പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഈ മാസം പത്തിന് തിരുവനന്തപുരത്ത് ചേരാനിരുന്ന സംസ്ഥാന എം

പുതിയ തീയതി പിന്നീട് അറിയിക്കും പാലാരിവട്ടം മേൽപാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി

പാലവുമായി ബന്ധപ്പെട്ട ഫയ ലുകൾ പരിശോധിക്കാൻ ഗവൺമെന്റ് വിജിലൻസിന് അനുമതി നൽകിയ ശേഷമാണ് അന്വേഷണം തുടങ്ങി യത് ഇബ്രാഹിംകുഞ്ഞ് ഒപ്പുവെച്ച രേഖകളുടെ പകർപ്പ് ലഭിക്കാൻ വിജിലൻസ് ഗവൺമെന്റിന് കത്ത് നൽകിയി ട്ടുണ്ട് ഇന്ത്യയുടെ മേഖലാ സഹകരണത്തിൽ ഒരു അയൽരാജ്യം ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളും മികച്ച സമീപനം സ്വീകരി ക്കുന്നവരാണെന്ന് വിദേശകാര്യ മന്ത്രി എസ്

ന്യൂഡൽഹിയിൽ ഇന്ത്യാ സാമ്പത്തിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കശ്മീരിന് പ്രത്യേക പദവി നൽകിയ തീരുമാനം താൽകാലി മായിരുന്നു എന്നതോ ഇന്ത്യയിലെ പല നിയമങ്ങളും അവിടെ ബാധകമായിരുന്നില്ല എന്ന വസ്തുതയോ പലർക്കും അറിയില്ലായിരുന്നുവെന്ന് ജയശങ്കർ വിശദീ കരിച്ചു ഇക്കാര്യത്തിൽ അയൽരാജ്യത്തിന്റെ നിലപാട് അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്നും അവർക്ക് തിരിച്ചറിവുണ്ടാകും എന്നാണ് പ്രതീക്ഷ്യെന്നും വിദേ ശകാര്യ മന്ത്രി പറഞ്ഞു

അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്

ഹിന്ദുകക്ഷികൾക്ക് മറുപടി വാദ ത്തിന് രണ്ടുദിവസം അനുവദിച്ചു

ജില്ലാ ആസൂത്രണ ഭവനിൽ വന അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ എ കെ ശശീന്ദ്രൻ എന്നിവരും പങ്കെടുക്കും

ഈ മാസം പത്തിനകം പരാതികൾ ജില്ലാ ഓഫീസുക ളിൽ നൽകാവുന്നതാണ് വയനാട് ജില്ലയിൽ സ്വകാരൃ ബസുകൾ ഇന്ന് രാവിലെ പ ത്ത് മുതൽ ഉച്ചക്ക് ഒരു മണി വരെ സർവീസ് നടത്തില്ല ബന്ദിപൂർ യാത്രാ നിരോധനത്തിന് എതിരെ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ യുവജന കൂട്ടായ്മ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപി ച്ചാണ് സമരം

ബന്ദിപ്പൂർ ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രത്യേക യോഗം രാവിലെ ചേരും ജന പ്രതിനിധികൾ പാർട്ടി നേതാക്കൾ സംഘടനാ നേതാ ക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും പാലായിൽ ഇന്നലെ ആരംഭിച്ച സംസ്ഥാന ജൂനിയർ അത്ല റ്റിക് മീറ്റിൽ ആദ്യ ദിവസം ആറ് റെക്കോർഡുകൾ

സി മറിയം ബെന്നി പോൾവാൾട്ടിൽ ദിവ്യആൻ്റണി എ കെ സിദ്ധാർഥ് നടത്തത്തിൽ വി കെ അഭിജിത്ത് എന്നിവരാണ് റെക്കോർഡിന് ഉടമകളായത്

ചാമ്പ്യൻഷി പ്പിൽ അമേരിക്കയാണ് മുന്നിൽ ചൈന രണ്ടാം സ്ഥാന ത്തും ജമൈക്ക മൂന്നാം സ്ഥാനത്തുമുണ്ട്

വിശാഖപട്ടണത്ത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ലീഡ് വഴങ്ങാതിരിക്കാൻ ദക്ഷിണാഫ്രിക്ക പൊരുതുന്നു

എന്നാൽ ആദ്യ രണ്ട് മത്സരത്തിൽ ജയിച്ച ഇന്ത്യ യ്ക്കാണ് പരമ്പര അസമിലെ ബോഡൌസാ കപ്പ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്

ഐലീഗ് ചാംപ്യൻമാ രായ മിനർവ്വ പഞ്ചാബിനെയാണ് ഗോകുലം തോൽപ്പി ച്ചത് പെനാൽട്ടി ഷൂട്ടൌട്ടിലായിരുന്നു വിജയം പ്രളയത്തിൽ തകർന്ന നാടുകാണി ചുരത്തിലൂടെ ഇന്ന് കെ എസ്

സി സർവീസുകൾ ആരംഭിച്ചു നിലമ്പൂരിൽ നിന്ന് ഗൂഢല്ലൂരിലേക്കും തിരിച്ചും മൂന്ന് സർവീസുക ളാണ് തുടങ്ങിയത് തിരൂരിൽ തുഞ്ചൻ വിദ്യാരംഭ കലോത്സവം ചലച്ചിത്ര സംവി ധായകൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ഭാഷ നഷ്ടമാ യാൽ സ്വത്വം തന്നെ നഷ്ടപ്പെടുമെന്നും അക്ഷരങ്ങളി ല്ലാത്ത ലോകം ഇരുളിലേക്ക് ജനതയെ നയിക്കുമെന്നും ജയരാജ് പറഞ്ഞു സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു

ഗാന്ധിയൻ ദർശനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ച രിത്ര വിദ്യാർഥികൾ പ്രതിജ്ഞാബദ്ധരാകണമെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോ

മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി യും കെ

സി മുൻ നിർവാഹക സമിതി അംഗവു മായിരുന്ന വിജയാ ഡി

മരണത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി കെ മുരളീധരൻ എം കെ രാഘവൻ തുടങ്ങിയവർ അനുശോചിച്ചു പൊതുവിദ്യാഭ്യാസ മുൻ ജോയിന്റ് ഡയറക്ടർ കെ വി വിനോ ദ്ബാബു കോഴിക്കോട്ട് നിര്യാതനായി കോഴിക്കോട് ഡി ഇ ഒ ഡി ഡി

മൃതദേഹം ഉച്ചയ്ക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും മാഹി സെന്റ് തെരേസാ ദേവാലയത്തിലെ തിരുനാൾ ഇന്ന് ആരംഭിക്കും

ഹിംസയ്ക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നവരെ രാജ്യദ്രോ ഹികളാക്കുന്ന നയമാണ് ദേശദ്രോഹമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

കൊല്ലത്ത് സംഘടിപ്പിച്ച അദാലത്തിൽ സ്വത്തുമായി ബന്ധപ്പെട്ട കുടുംബ പ്രശ്നങ്ങളാണ് കൂടുതലായി എത്തിയത് പരാതി നൽകുന്നവർക്കെതിരെ എതിർ കക്ഷികൾ വീണ്ടും സമീപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ആവി ല്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി

ജലസമ്പത്ത് കാർഷിക വൈവിധ്യം ശുചിത്വ പരി പാലനത്തിന് കൈവരിച്ച നേട്ടങ്ങൾ തുടങ്ങിയവ നിരീ ക്ഷണത്തിന് വിധേയമാക്കും കണ്ണൂർ തില്ലങ്കേരി പഞ്ചായത്തിലെ പാഷൻഫ്രൂട്ട് കൃഷി വിള വെടുപ്പിന് തയാറായി രണ്ടായിരം തൈകളാണ് പദ്ധതി യിൽ വിതരണം ചെയ്തത് മന്ത്രി വി എസ് സുനിൽകു മാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യും